പൌരത്വം ഇല്ലാതാക്കില്ലെന്ന് കേന്ദ്ര നിയമ മന്ത്രി നിയമം ഭരണഘടനാപരവും നിയമപരവുമെന്നും ശ്രീ രവിശങ്കർ പ്രസാദ്

നിയമസഭ പാസാക്കി

ജെ

എതിർത്തു സങ്കുചിതമായ ലാഭത്തിന് വേണ്ടിയെന്ന് ഒ രാജഗോപാൽ എം

ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് സംസ്ഥാനത്ത് നാളെ മുതൽ നിരോധനം

സംഭവബഹുലമായ വർഷത്തിന് വിടപറഞ്ഞ് പുതുവൽസരത്തെ വരവേൽക്കാൻ ലോകം ഒരുങ്ങി ആഘോഷം അതിരുകടക്കാതിരിക്കാൻ സംസ്ഥാനത്ത് ജാഗ്രത

തിരുവന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു

പൌരത്വം സംബന്ധിച്ച നിയമം പാസ്സാക്കുന്നതിന് പാർലമെന്റിന് മാത്രമാണ് അധികാരം

നിയമം സംബന്ധിച്ച പ്രമേയത്തിന് കോൺഗ്രസീ അംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇത്ത് ്വിഷയത്തിൽ ഗവൺമെന്റ് തന്നെ പ്രമേയം അവതരിപ്പിക്കുക്കുതി്നാൽ അനുമതി നൽകിയില്ല്

പൌരത്വം സംബന്ധിച്ച ഭേദഗതി നിയമം കേന്ദ്രം പിൻവലിക്കണമെന്നും സംസ്ഥാനത്ത് തടങ്കൽപ്പാളയങ്ങൾ ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രമേയത്തെ ബി ജെ പി അംഗം ഒ രാജഗോപാൽ സഭയിൽ എതിർത്തു പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണെന്നും സങ്കുചിത ലാഭത്തിനുവേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു

കൃഷ്ണദാസ് ദേശീയ പൌരത്വ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം ഭരണഘടനയ്ക്കും ദേശത്തിനും വിരുദ്ധമാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി

ദേശവിരുദ്ധ താൽപര്യം സംരക്ഷിക്കാനാണ് സി പി ഐഎം കോൺഗ്രസ് മുസ്തീം ലീഗ് സംയുക്ത നീക്കമെന്നും ശ്രീ പി കെ കൃഷ്ണദാസ് ആരോപിച്ചു

അബ്ദുള്ളകുട്ടി രാജ്യത്ത് ഹിന്ദുസംസ്കാരം നിലനിൽക്കുന്നിടത്തോളം ഇന്ത്യ മതരാഷ്ട്രമാവില്ലെന്ന് ബി ജെ

സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ

മാനന്തവാടിയിൽ സ്വാഭിമാന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൌരത്വനിയമം അഭയാർഥികളെ മാത്രം ബാധിക്കുന്നതാണ് ഇതിന്റെ പേരിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ശ്രീ അബ്ദുളള ക്കുട്ടി ആരോപിച്ചു

പിന്തള്ളപ്പെട്ട വിഭാഗങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമായ നടപടിയാണ് പ്രത്യേക പ്രാതിനിധൃമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സാമൂഹിക സ്ഥിതിയിൽ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ജാതി വൃവസ്ഥയുടെ ജീർണ്ണിച്ച അംശങ്ങൾ ഇന്നും പല തട്ടിലും നിലനിൽക്കുന്നുവെന്നത് വസ്തുതയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടുതൽ നിയമസഭാ വാർത്തകൾ പ്രാദേശിക വാർത്തകൾക്ക് ശേഷമുള്ള നിയമസഭയിൽ ഇന്ന് എന്ന പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്യും നിർമ്മാണ അതോറിറ്റി റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി സംസ്ഥാനത്ത് നാളെ നിലവിൽ വരും അതോറിറ്റിയിൽ ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഫ്ളാറ്റുകൾ ഉൾപ്പെടെ കൈമാറ്റം ചെയ്യാനാവൂ

ചന്ദ്രദത്തൻ ഉദ്ഘാടനം ചെയ്തു ദ്വീപ് ശാസ്ത്രം സുസ്ഥിര ജീവിതത്തിന് എന്നതാണ് അടുത്ത് ബാലശാസ്ത്ര കോൺഗ്രസിന്റെ പ്രമേയം

വിശദാംശങ്ങളുമായി സുവർണ

ഒറ്റത്തവണ ഉപയോഗത്തിനുളള പ്ലാസ്റ്റിക്കാണ് നിരോധിക്കുന്നത്

എന്നാൽ ആഹാരവും പച്ചക്കറിയും പൊതിയുന്ന ക്ലിങ് ഫിലിം മുൻകൂട്ടി അളന്നുവച്ച ധാനൃങ്ങൾ പയർവർഗങ്ങൾ പഞ്ചസാര എന്നിവ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ മത്സ്യം ഇറച്ചി എന്നിവ തൂക്കിയ ശേഷം വിൽപനയ്ക്ക് പൊതിയുന്ന പ്ലാസ്റ്റിക് കവർ ബ്രാൻഡ് ചെയ്ത ഉൽപന്നങ്ങളുടെ പായ്ക്കറ്റ് കയറ്റുമതിക്കുള്ള പ്പാസ്റ്റിക് വസ്തുക്കൾ ആരോഗ്യ പരിഷ്ടാലനത്തിനുള്ള പ്ലാസ്റ്റിക് ക്ക് പ്ലാസ്റ്റിക്കൾ കംപോസ്റ്റബിൾ വിഭട്ട്ഗത്തിൽപ്പെടുന്ന പ്ലാസ്റ്റിക് എന്നിവയ്ക്ക് നിരോധനമില്ല

നോൺ വോവൻ ബാഗ് പ്ലാസ്റ്റിക് ഉത്പന്നമാണെന്ന ഗവൺമെന്റിന്റെ വാദം ഹൈക്കോടതി കണക്കിലെടുത്തു ഹർജി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഹർജികളുടെ കൂടെ പരിഗണിക്കും

ആദ്യ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത വിനോദ സഞ്ചാര കേന്ദ്രമായി കുമരകത്തെ ജനുവരിയിൽ പ്രഖ്യാപിക്കാനാകുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ പ്രതീക്ഷ

അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് പരിപാടി സ്മംഘടിപ്പിച്ചിരിക്കുന്നത്

പുതുവൽസര ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നഗരങ്ങളിൽ ഹോട്ടലുകളും ബീച്ചുകളും കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്

കൊച്ചിയിൽ ഫോർട്ടുകൊച്ചിയിൽ പാപ്പാത്തിയെ കത്തിച്ചാണ് ആഘോഷത്തുടക്കം

ബീച്ചുകളിലും ബാർ ഹോട്ടലിലും ബിയർ പാർലറുകളിലും റിസോർട്ടുകളിലും പോലീസ് കർശന നിരീക്ഷണം നടത്തുന്നുണ്ട് എല്ലാ ജില്ലകളിലും ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആഘോഷം ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി പോലീസിനെ വിന്യസിക്കും വാഹന പരിശോധനയും കർശനമാക്കും

ന്യൂസ്ഡെസ്കിൽ നിന്ന് സുവർണ്ണത്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്

മഹാ പ്രളയദുരന്തത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടാം പ്രളയം എത്തിയതും കേരളത്തെ വീണ്ടും അതിജീവനത്തിന്റെ പാതയിൽ എത്തിച്ചു

പുൽവാമ ബാലക്കോട്ട് ആക്രമണം കുൽഭൂഷൺ യാദവിനുളള നയതന്ത്രാസഹായം ഇവയെല്ലാം അന്താരാഷ്ട്രതലത്തിൽ രാജ്യം ശ്രദ്ധിക്കപ്പെട്ട് സംഭവങ്ങളാണ്

പ്രിയ കവി അക്കിത്തം ജ്ഞാനപീഠമേറിയപ്പോൾ അത് മലയാളസാഹിത്യത്തിന് അഭിമാനമായി മാറി

ദിവസങ്ങളോളം നീണ്ട വായു മലിനീകരണവും ദശാബ്ധത്തിലെ ഏറ്റവും വലിയ രാജ്യതലസ്ഥാനത്തെ ശൈത്യവും രാഷ്ട്രീയ സാഹചര്യങ്ങളോടൊപ്പം ചർച്ച ചെയ്യപ്പെട്ടു